കേരളാ ബാങ്ക് രൂപീകരണത്തിന് റിസർവ് ബാങ്ക് തത്വത്തിൽ അംഗീകാരം നൽകി

ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരക്ക് ഇന്ന് തുടക്കം

ൾ ൽ ൾ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ഇന്നലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അടിയന്തര യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി കടലിൽ പോയ മീൻപിടുത്തക്കാർ നാളേക്ക് മുൻപ് തിരിച്ചെത്തണമെന്നും ഇന്നു മുതൽ ആരും മീൻപിടുത്തത്തിന് പോകരുതെന്നും മുഖൃമന്ത്രി നിർദേശിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ഡാമുകളിലെ ജലനിരപ്പ് വിലയിരുത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കും നാളെ മുതൽ സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഞായറാഴ്ച്ച അതിശക്തമായ മഴയ്ക്കും സാധൃതയുണ്ട് അറബിക്കടലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ശ്രീലങ്കയുടെ അടുത്ത് നാളെയോടു കൂടി ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഇത് ചുഴലിക്കാറ്റായി മാറി ലക്ഷദ്വീപിന് സമീപത്തുകൂടി വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് സഞ്ചരിക്കും ഇതേ തുടർന്ന് പാലക്കാട് തൃശൂർ ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ച്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ ഇന്നു മുതൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മൂന്നാറും നെല്ലിയാമ്പതിയും ഉൾപ്പടെ മലയോര മേഖലയിൽ വിനോദ സഞ്ചാരത്തിനും രാത്രിയാത്രക്കും നിയന്ത്രണം ഏർപ്പെടുത്തി അണക്കെട്ടുകളിൽ നിരീക്ഷണം കർശനമാക്കാൻ കെഎസ്ഇബി ജലസേചന വകുപ്പുകൾക്കും നിർദേശം നൽകി മീൻപിടുത്ത തുറമുഖങ്ങളിലും ഗ്രാമങ്ങളിലും അപായ കൊടി ഉയർത്തണം മഴയുടെ തീവ്രതയും തോതും പരിഗണിച്ച് ആവശ്യമെങ്കിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധി നൽകാവുന്നതാണ് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇടുക്കി പാലക്കാട് ജില്ലകളിൽ സുരക്ഷാ മുൻകരുതലുകൾ ഊർജിതമാക്കി പൊലീസ് ഫയർഫോഴ്സ് കെഎസ്ഇബി ടൂറിസം വകുപ്പുകൾക്ക് ജാഗ്രത പാലിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ട് ഉരുൾപ്പൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ പ്രദേശങ്ങളിലേക്ക് സഞ്ചാരികളെ നിയന്ത്രിക്കണം ഇൌ ഭാഗങ്ങളിലേക്ക് യാത്ര ഒഴിവാക്കാൻ നിർദേശം നൽകി കേരളാ ബാങ്ക് രൂപീകരണത്തിന് റിസർവ് ബാങ്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

ഇതിന് ശേഷമായിരിക്കും അന്തിമ അനുമതിയും തുടർ ലൈസൻസിങ്ങ് നടപടികളുമെന്ന് അറിയിച്ചിട്ടുണ്ട്

ജില്ലാ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും സംസ്ഥാന ഗവൺമെന്റും ഇക്കാരൃത്തിൽ ധാരണാപത്രം ഒപ്പുവെക്കണമെന്നും റിസർവ് ബാങ്ക് നിർദേശം നൽകി ശബരിമലയിലെ സ്ത്രീപ്രവേശന വിഷയത്തിൽ കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന ഘടകങ്ങൾ തമ്മിൽ അഭിപ്രായ വൃത്യാസമില്ലെന്ന് പാർട്ടി വക്താവ് രൺദീപ് സിങ്ങ് സൂർജേവാല വ്യക്തമാക്കി ലിംഗപരമായ വിവേചനം ഒരുകാരൃത്തിലും ഉണ്ടാകരുതെന്ന നിലപാടാണ് പാർട്ടിയുടേത് സൂപ്രീം കോടതി വിധി പുനപരിശോധിക്കണമെന്ന ആവശൃം കേരളാഘടകം ഉന്നയിച്ചത് സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം മാനിച്ചാണെന്നും സൂർജെവാല ന്യൂഡൽഹിയിൽ പറഞ്ഞു വിശ്വാസികളുടെ വികാരത്തെ മറന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കരുതെന്ന് ആർഎസ്എസ് അഭിപ്രായപ്പെട്ടു

ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കില്ലെന്നും കോടതി വിധിക്കെതിരെ പന്തളം കൊട്ടാരവും അയ്യപ്പഭക്തരും നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്ക് പിന്തുണ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു

പിണറായി വിജയന്റെ താൽപര്യമല്ല സ്വാമി അയ്യപ്പന്റെ താൽപര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംരക്ഷിക്കേണ്ടതെന്നും സ്ുപ്രീം കോടതി വിധിക്കെതിരെ തുടർ നിയമ നടപടികൾക്ക് പോകണോ എന്ന കാര്യം ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വേദനയേറ്റു വാങ്ങിയ ഒരു ഭക്തനും ദേവസ്പം ബോർഡിന്റെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ കാണിക്കയിടില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ

ശശികല പറഞ്ഞു റാന്നിയിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് എതിരെ സംഘടിപ്പിച്ച നാമജപയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ

ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖൃധാരയിലേക്ക് കൊണ്ടുവരണമെന്നും എല്ലാ മേഖലകളിലും അവരെ പരിഗണിക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ അനിവാര്യതയാണെന്നും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു

പൊന്നാനിയിലെ കലാ സാംസ്കാരിക കേന്ദ്രമായ നിള പൈതൃക കലാഗ്രാമം കാഴ്ചയില്ലാത്തവർക്കും സഹായകരമാവുന്ന തരത്തിലാണ് ഒരുക്കുന്നത് രാജ്യത്തെ ആദ്യ ബ്ലൈൻഡ് മ്യൂസിയമാണ് നിള പൈതൃക കലാഗ്രാമമെന്നും സ്പീക്കർ പറഞ്ഞു

ശബരീഷ് സ്മാരക പുരസ്കാരം ഇന്ന് മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കന്ററി സ്കൂളിൽ പ്രൊഫ

ഒരു ലക്ഷം രൂപയും ട്രോഫിയും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്ക്കാരത്തിന് അരീക്കോട് ജിഎച്ച്എസ്എസ് ആണ് അർഹമായത് അടുത്ത വർഷം മുതൽ നാഷണൽ സർവ്വീസ് സ്കീം അംഗത്വത്തിന് നീന്തൽ മാനദണ്ഡമാക്കുമെന്ന് മന്ത്രി ഡോ

അതിന്റെ അടിസ്ഥാനത്തിലാണ് നീന്തൽ അവശ്യ യോഗൃതയാക്കുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരക്ക് ഇന്ന് തുടക്കമാകും രണ്ട് മത്സര പരമ്പരയിലെ ആദ്യ പോരാട്ടം രാവിലെ രാജ് കോട്ടിലെ സൌരാഷ്ട്രികിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ച്ചവെച്ച പൃഥിഷാ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കും ടെസ്റ്റിലെ ഒന്നാംസ്ഥാനം നിലനിർത്താൻ പരമ്പരയിലെ രണ്ട് മത്സരങ്ങളും ഇന്ത്യക്ക് ജയിക്കണം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഡൽഹി ഡൈനാമോസ് പൂണെ സിറ്റി എഫ്സി മത്സരം സമനിലയിൽ അവസാനിച്ചു ഡൽഹിയിലെ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ചു ഇന്ന് എടികെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും സംസ്ഥാന സിബിഎസ്ഇ സ്കൂൾ കായികമേള മറ്റന്നാൾ പാലാ സിന്തറ്റിക് ട്രാക്കിൽ തുടങ്ങും

സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തേൻ കേരളാ ബ്രാന്റിൽ വിപണിയിൽ എത്തിക്കാനാകണമെന്ന് മന്ത്രി വി

തേനിന്റെ ഗൂണനിലവാരം നിശ്ചയിച്ച് പൊതു ബ്രാന്റിൽ ഇറക്കാൻ കർഷക സംഘടനകൾ തയാറായാൽ ഗവൺമെന്റ് ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു തേനീച്ച കർഷക സംഗമവും തേൻമേളയും വി ജെ ടി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സർവകലാശാല തലത്തിൽ കണ്ണൂരിനാണ് അവാർഡ് മികച്ച എൻഎസ്എസ് യൂണിറ്റുകളായി കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളജ് ചേർത്തല ശ്രീനാരായണ കോളജ് കുട്ടനല്ലൂർ അച്ച്യുതമേനോൻ ഗ്വൺമെന്റ് കോളജ് ആലപ്പുഴ എസ്ഡി കോളജ് സെന്റ് ജോർജ് കോളജ് അരുവിത്തുറ മാനന്തവാടി ഗവൺമെന്റ് എഞ്ചിനിയറിങ്ങ് കോളജ് തുടങ്ങിയ സ്ഥാപനങ്ങളെ തെരഞ്ഞെട്ടുത്തു കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതക്ക് പാണത്തോട് വരെ ഭൂമിയേറ്റെടുക്കാൻ ഉത്തരവായി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെന്ന് മന്ത്രി ഇ

കണ്ണൂർ വിമാനത്താവളം നാളെ മുതൽ സന്ദർശകർക്കായി തുറന്ന് കൊടുക്കും പൊതുജനങ്ങൾക്കും ഭൂമി വിട്ടു നൽകിയവർക്കും ഓഹരി ഉടമകൾക്കുമാണ് സന്ദർശനാനുമതി

ചൊവ്വാഴ്ച്ച അന്തരിച്ച സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ സംസ്ക്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളി പാറത്തോട് സെന്റ് ജോർജ് ഗ്രേസി മെമ്മോറിയൽ പള്ളി സെമിത്തേരിയിൽ നടക്കും രാവിലെ തറവാട് വീടായ കണ്ണന്താനത്ത് എത്തിക്കുന്ന ഭൌതികദേഹം ഉച്ചക്ക് രണ്ട് വരെ പൊതു ദർശനത്തിന് വെക്കും അന്തരിച്ച സിപിഐ നേതാവ് ഐ

ശശാങ്കന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും

ശശാങ്കന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു മാട്ടുപ്പെട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഇന്ന് തുറക്കും മുതിരപ്പുഴ വഴി വെള്ളം ഒഴുക്കി വിടുന്നതിനാൽ മൂന്നാർ മുതിരപ്പുഴ കല്ലാർക്കുട്ടി ലോവർ പെരിയാർ മേഖലകളിലെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു കണ്ണൂർ വേവ് സിന്റെ ഈ വർഷത്തെ സുകുമാർ അഴീക്കോട് പുരസ്കാരം ചലച്ചിത്ര നടൻ മധുവിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച്ച് വൈകീട്ട് കണ്ണൂരിൽ പുരസ്കാരം സമ്മാനിക്കും

വനിതാ കമ്മീഷൻ അംഗങ്ങളായ ഷാഹിദ കമാൽ എം